പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മധ്യപ്രദേശിലെ തെരുവ് കച്ചവടക്കാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീ വിജയ വോയിസ് സമൂഹത്തിന്റെ താഴേക്കിടയിൽ കഴിയുന്ന വഴിയോര കച്ചവടക്കാരുടെ കഷ്ടപ്പാടുകൾക്ക് പരീഫാരം കണ്ടെത്താൻ കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികൾക്കാണ് തുടക്കംകുറിച്ചത്

പദ്ധതിയിലൂടെ ഇവർക്ക് വൻ വായ്പ ഇളവുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പാവപ്പെട്ട വഴിയോര കച്ചുവടക്കാരെ സഹായിക്കാൻ ജൂൺ ഒന്നിനാണ് കേന്ദ്ര സർക്കാർ പി എം സ്വനിധി ആരംഭിച്ചത്

മത്സ്യക്കുഞ്ഞുങ്ങളുടെ ബാങ്കും ജലാശയ രോഗങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ആശുപത്രിയും പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കും കന്നുകാലി കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഇ ഗോപാല ആപ്പിനും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കും

കൂടികാഴ്ച ഫലപ്രദമായിരുന്നുവെന്നും ഉഭയകക്ഷി പ്രാദേശിക താല്പര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തതായും അദ്ദേഹം ട്വീറ്റ് ചെയ്തു

കോവിഡ് പകർച്ചവ്യാധി മൂലം ആദ്യമായാണ് രണ്ട് ദിവസത്തെ സമ്മേളനം പൂർണ്ണമായും വെർചൽ പ്ലാറ്റ്ഫോമുകൾ വഴി നടക്കുന്നത്

ഒരു മാസത്തിനുള്ളിൽ തന്നെ രോഗമുക്തി നേടുന്നവരുടെ എണ്ണം മൂന്നിരട്ടി വർധിച്ചുവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു

തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലെർട്ട് ആണ്

കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

കിഫ്ബിയിൽ നിന്നും അഞ്ച് കോടി രൂപയാണ് ഓരോ സ് കൂളിനും ചിലവഴിക്കുന്നത്

നോട്ടുബുക്ക് പേന പെൻസിൽ തുടങ്ങി ഒരു വസ്തുക്കളും പരസ്പരം കൈമാറാൻ അനുവദിക്കുകയില്ല

ഇത്തരത്തിൽ വ്യക്തമായ മാനദണ്ഡങ്ങൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് ഇവ കൃത്യമായി പാലിച്ചു കൊണ്ട് മാത്രമേ സ്കൂളുകൾ തുറക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി

സ ്കൂളുകൾ ഓൺലൈൻ ക്സാസുകൾ നടത്തുമ്പോൾ സംസ്ഥാനവും കേന്ദ്രവും നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും കോടതി അറിയിച്ചു

കേന്ദ്ര പ്രിദ്ദേശകാര്യ സെക്രട്ടറി ഫ്രഞ്ച് വിദേശകാര്യ സെക്രട്ടറി ജനറൽ ഓസ്ട്രേലിയ വിദേശകാരൃ സെക്രട്ടറി എന്നിവർ സംയുക്തമായാണ് യോഗത്തിന് ആധ്യക്ഷം വഹിച്ചത്

സാമ്പത്തിക വ്യാപാര മേഖലയിലെ സഹകരണത്തെ കുറിച്ചും യോഗത്തിൽ പരാമർശം ഉണ്ടായി

മരുന്നു പരീക്ഷണം നടത്തിയ വ്യക്തിയിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഇത്തരത്തിൽ പരീക്ഷണം നിർത്തി വയ്ക്കുന്നത് സ്വാഭാവികമാണെന്ന് കമ്പനി പ്രസ്താവനയിലൂടെ അറിയിച്ചു വാക്സിന്റെ സുരക്ഷ സംബന്ധിച്ചു ഒരു സ്വതന്ത്ര സമിതിക്ക് വിലയിരുത്തൽ നടത്തുന്നതിനായാണ് വാക്സിൻ പരീക്ഷണം നിർത്തിവെക്കുന്നതെന്നും കമ്പനി വ്യക്തമാക്കി

പണികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി കഴിഞ്ഞവർഷം ഫെബ്രുവരി മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജമ്മു എയിംസിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്

കേസ് കോടതി നാളെ വീണ്ടുംപരിഗണിക്കും

കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്ര സിംഗ് തോമർ റെയിൽവേ സഹമന്ത്രി സുരേഷ് സി അങ്ങാടി ആന്ധ്ര മുഖ്യമന്ത്രി ജഗൻ മോഹൻ റെഡ്ഡി എന്നിവർ ചേർന്ന് വീഡിയോ കോൺഫറൻസിലൂടെയാണ് ട്രെയിനിന് ഫ്ളാഗ് ഓഫ് ചെയ്തത്

കാർഷിക ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ലക്ഷ്യമിട്ടാണ് കിസാൻ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്

എ ഇ

രാജ്യത്തെ റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തികൊണ്ട് അടിസ്ഥാനസൌകര്യം വികസിപ്പിക്കുകയും ബിസിനസ് നടത്തിപ്പ് സുഗമമാക്കുന്നതിനുമുള്ള നിരവധി നടപടികൾ സ്വീകരിക്കുകയും ചെയ്തതായി മന്ത്രാലയം പറഞ്ഞു